മുന്നണികൾക്ക് ആവേശം പകർന്ന ദേശീയ നേതാക്കൾ രംഗത്ത്

ബാക്കിനിൽക്കെ സംസ്ഫാനത്ത് വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പ്രിൻപ്സാന ഘട്ടത്തിൽ സാമ്പത്തിക നിർവ്വഹണത്തിൽ എൽ ഡി എഫ് ന് സർക്കാരിന് പിഴവ് സംഭവിച്ചെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തെ ഇകഴ്ത്തി കാട്ടാൻ മനഃപൂർവം ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ കണ്ണൂർ കൂത്തുപറമ്പിൽ എൻ

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇന്ന് കോഴിക്കോടും ചേർത്തലയിലും റോഡ്ഷോയിലും പൊതുസമ്മേളത്തിലും പങ്കെടുക്കും രാഹുൽഗാന്ധി എംപി ഇന്ന് കോഴിക്കോടും കൊയിലാണ്ടിയിലും യുഡിഎഫ് പ്രചാരണ പരിപാടികളിൽ സംബന്ധിക്കും

കേന്ദ്രമന്ത്രിമാരായ പ്രൾഹാദ് ജോഷി ഗിരിരാജ് സിങ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ വലിയതുറയിൽ പ്രിച്ചാരണം നടത്തി

ഐ നേതാവ് കനയ്യ കുമാർ ആലപ്പുഴയിൽ എൽ ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുത്തു

ക്ക്ക് എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാ കാരാട്ട് നയിക്കുന്ന് റ്റോഡ് ഷോ നാളെ മാനന്തവാടിയിൽ നടക്കും

തെരഞ്ഞെടുപ്പ് നടപടികളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇത്തവണ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും

കൊവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു

സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പൂർണമായും വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന പോളിംഗ് ബൂത്തുകൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്ന് എന്ന തോതിൽ ഒരുക്കി

തെരഞ്ഞെടുപ്പ് വേളയ്ടിൽ മാ്തൃകാ പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കുന്നതിന്റെ ഭ്യാഗ്ഗമായി ഫ്ളയിംഗ് സ് കാഡുകൾ പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു പൊതുജനങ്ങൾക്ക് പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധ്യിൽപ്പെട്ടാൽ സി വിജിൽ ആപ്ലിക്കേഷൻ മുഖേന അറിയിക്കാം

റോഡ് ഷോയിൽ അഞ്ചുവാഹനം മാത്രമേ ഒരു നിരയിൽ പങ്കെടുക്കാനാവൂ എന്നും അരമണിക്കൂറിന്റെ ഇടവേളയിൽ മാത്രമേ അടുത്ത ജാഥ അനുവദിക്കാവൂ എന്നും മാർഗനിർദേശത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്ന് വൈകിട്ട് അഞ്ചുവരെ അതത് മണ്ഡലങ്ങളിലെ തപാൽ വോട്ടിങ് കേന്ദ്രത്തിൽ വോട്ടുചെയ്യാം ജില്ലകളിലൂടെ എറണാകുളം ഇൻട്രോ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനത്തിന്റെയും വൃക്തിപരമായ കൂടിക്കാഴ്ചകളുടെയും തിരക്കിലാണ് വിവിധ മുന്നണികളുടെ ദേശീയ നേതാക്കളുടെ വരവും പ്രവർത്തകരുടെ ആവേശത്തിന് തിരി കൊളുത്തിയിട്ടുണ്ട്

ഇവരുടെ പട്ടിക എല്ലാ പ്രിസൈഡിങ് ഓഫീസർമാർക്കും നൽകും ഇത്തരം വോട്ടർമാരിൽ നിന്ന് പ്രത്യേക സത്യവാങ്മൂലം വാങ്ങാനും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വൃക്തികളും നൽകുന്ന പരസ്യങ്ങൾക്ക് നിബന്ധന ബാധകമാണ് അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി കണക്കാക്കി നടപടി സ്വീകരിക്കും

എഫ് സർക്കാരിന്റെ സാമ്പത്തിക നിർവ്വഹണത്തിൽ പിഴവ് ജി ഡി പി യെ പ്രതികൂലമായി ബാധിച്ചെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മ കൊറോണ വ്യാപനത്തിന് കാരണമായെന്നും എൽ ഡി

ഡി

കോൺഗ്രസ് ബി ജെ

ജെ

ക്ക് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കാനായത് ഇത്തവണ ആ അക്കൌണ്ട് ് എൽ ഡി എഫ് ക്ലോസ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോപ്പിഡ് വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്ക്ണ്മെന്നും വാക്സിനേഷൻ സ്വീകരിക്കാൻ എല്ലാവരു്ം തയ്യാറാവണമെന്നും കണ്ണൂർ പിണറായിയിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ വോട്ടിങ് യന്ത്രങ്ങളിലും ഇതിനായുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കോഴിക്കോട് കൊയിലാണ്ടിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും കോൺഗ്രസ് മുന്നോട്ടുവച്ച ന്യായ് പദ്ധതിയിലൂടെ പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റർ ലോകത്തിന് പ്രത്യാശയും പ്രതീക്ഷയും പകർന്ന് നാളെ ഈസ്റ്റർ യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയിർപ്പും ഉദ്ഘോഷിക്കുന്ന ഈസ്റ്റർ വിശുദ്ധ വാരാഷ്ട്രണത്തിന്റെ സമാപനം കൂടിയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പള്ളികുളിൽ കഴിഞ്ഞ ഒരാഴ്ചയും വിശുദ്ധ വാരാചരണം നടത്തിയ്ത് ഇന്ന് അർദ്ധരാത്രി ഈസ്റ്റർ ദിന പ്രത്യേക ദിവൃബലിയ്ക്കും ഉണ്ടാകും തിരക്കൊഴിവാക്കാൻ മിക്ക പള്ളികളിലും ദിഷ്യബ്ലിയുടെ എണ്ണം പതിവിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി ഇൻട്രോ നിയമസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കിയിലെ അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കി പോലീസ്

അതിനിടെ രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഏഴ് കോടി ഡോസ് പിന്നിട്ടു